പ്രധാൻമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജനയുടെ ഗുണഭോക്താക്കളുമായി ശ്രീ നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും

അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി പ്രിൻസിപ്പിലിനെതിരെ സി

മഹാരാഷ്ട്രയിലും കൊങ്കൺ തീരത്തും കനത്ത മഴയ്ക്ക് സാധൃതയെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ്

ഹൃദ്രോഗത്തിന് ഇടുന്ന സ്റ്റെന്റുകളും കാൽമുട്ട് വച്ച് പിടിപ്പിക്കലും രോഗികൾക്ക് ലഭ്യമാക്കുകയാണ് പ്രാധാൻമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയിലൂടെ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിയുടെ സംവാദം നമോ ആപ്പ് യൂ ട്യൂബ് ഫെയ്സ് ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ലഭ്യമാണ് രോഗബാധിതരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദരിദ്രരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ മനസിലാക്കുന്നതിനും അവരെ തുടർ ജീവിതത്തിൽ കൊണ്ടു വരുന്നതിനും ഉതകുന്ന കാര്യങ്ങൾ മനസിലാക്കാന്നതിനും സംവാദം പ്രയോജനകരമാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഗോമതി ജില്ലയിലെ ഉദയ്പൂരിൽ മട്ടബരിയിൽ നിന്ന് സബറൂമിലേക്കുള്ള ദേശീയ പാതയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവ്വഹിക്കും ത്രിപുര സുന്ദരി ക്ഷേത്രത്തിലെ മട്ടബരി ക്ഷേത്ര സമുച്ചയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശ്രീ

ആഗോള സാമ്പത്തിക പ്രത്യാശാ റിപ്പോർട്ടിന്റെ ഇന്നലെ പുറത്തിറക്കിയ ആഗോള സാമ്പത്തിക പ്രത്യാശ്യാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ടി

ലോകസ്ഥാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി തുടരുന്നതായും അഭിപ്രായപ്പെട്ടു അദ്ദേഹം

ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്

മാതൃ മരണ നിരക്ക് ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായി ആരോഗൃമന്ത്രി ജെ

കഴിഞ്ഞ മാസം പുരുലിയ ജില്ലയിൽ ബി ജെ

പശ്ചിമബംഗാൾ ഗവൺമെന്റ് കഴിഞ്ഞ ശനിയാഴ്ച വിഷയത്തിൽ ക്രിമിനൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്

ബി

ബി

ഓഫീസുകളിലും പ്രതികളുടെ വീടുകളിലും നടത്തിയ തിരച്ചിലുകളിൽ ഒട്ടേറെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായി സി ബി ഐ വക്താവ് ആർ

ഇൻസ്ട്രുമെൻറേഷൻ ലിമിറ്റഡ് കേരള എന്ന പേരിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് ആസ്തികൾ അതിലേക്ക് മാറ്റും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഈ കാലഘട്ടത്തിലെ സംഭാവനകളുടെ അഞ്ച് ശതമാനം വിവവരം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചതെന്നും അസോസിയേഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കി

ഈപരിശോധനയിൽ കോളേജുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതകൾ ഉള്ളതായി മെഡിക്കൽ കൌൺസിൽ ചൂണ്ടിക്കാട്ടി

കറാച്ചിയിലെ എൽ

അഴിമതി കാൻസർരോഗം പോലെയാണെന്നും സമൂഹത്തിൽ നിന്നും അഴിമതിയെ തുടച്ചുനീക്കാൻ തന്റെ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്നും ദേശീയ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ ചെയർമാൻ ജാവേദ് ഇക്ബാൽ പറഞ്ഞു

നൽകിയ ഒരു സ്വകാര്യ ചാനലിന് അഭിമുഖത്തിലാണ് വൈറ്റ് ഹൌസ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ഈ മൽസരം ഇന്ന് തുടരും

രത്നഗിരിയിലും സിന്ധുദർഗ് ജില്ലയിലും കനത്ത മഴ ഉണ്ടാകാൻ സാധ്യദ്ധ്യയുണ്ടെന്നും കലാവസ്ഥ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പകുൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടണ്ട് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കൊങ്കൺ മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി

രാജ്നാഥ് സിംഗ് അവലോകനം ചെയ്യും

വോഹ്റ ഉന്നത പോലീസ് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തും